കോവിഡ് പശ്ചാത്തലത്തിൽ രണ്ടാം ഘട്ടം അൺലോക്ക് മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്രം പുറത്തിറക്കി

ചെയ്യും

സൈനികതല കൂടിക്കാഴ്ച ഇന്ന്

ചികിത്സയിലുള്ളത് രണ്ട് ലക്ഷത്തി പതിനായിരത്തിലേറെ പേർ

എസ് എൽ സി പരീക്ഷാഫലം ഇന്നറിയാം

അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഉണ്ടാവില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകുന്ന വിമാനങ്ങൾക്ക് പറക്കാം മെട്രോ തീവണ്ടി സർവീസുകളും ഉണ്ടാവില്ല സിനിമാ ശാലകൾ ജിംനേഷ്യങ്ങൾ സ്വിമ്മിങ് പൂളുകൾ എൻ്റർടെയ്ൻമെന്റ് പാർക്കുകൾ ബാറുകൾ ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയവയും തുറക്കില്ലും സാമൂഹ്യ രാഷ്ട്രീയ കായിക വിനോദ വിദ്യാഭ്യാസ സാംസ്ക്കാരിക മത ചടങ്ങുകളും കൂട്ടായ്മകളും അനുവദിക്കില്ല നിള്വീൽ ്അനുവദിച്ചിട്ടുള്ള ആഭ്യന്തര വിമാന സർവീസുകളും ട്രെയിർ ്സർവീസുകളും ഘട്ടംഘട്ടമായി വർധിപ്പിക്കുമെന്നും ആഭ്യന്തർ മ്യ്താലയം വ്യക്തമാക്കി

രണ്ടാം ഘട്ട അൺലോക്ക് മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്രം പുറത്തിറക്കിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന എന്നത് ശ്രദ്ധേയമാണ്

രാജ്യത്തിന്റെ പൊതുസുരക്ഷയ്ക്കും പ്രതിരോധത്തിനും വെല്ലുവിളി ഉയർത്തുന്നതായി നിരീക്ഷിച്ചാണ് ടിക് ടോക് ഹലോ വീ ചാറ്റ് ഉൾപ്പെടെയുള്ള ആപ്പുകൾക്ക് നിരോധനമേർപ്പെടുത്തിയത് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ

ആപ്പുകൾ രാജ്യത്തിന്റെ പരമാധികാരത്തിനും ഐക്യത്തിനും ഭീഷണിയാവുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു ഇന്ത്യയ്ക്ക് പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള സർവറുകളിലേക്ക് ഡാറ്റകൾ അനധികൃതമായി കൈമാറ്റം ചെയ്യപ്പെടുന്നതായ പരാതികൾ മന്ത്രാലയത്തിന് ലഭിച്ചിരുന്നു

രാവിലെ പത്തരയ്ക്കാണ് യോഗം ആരംഭിക്കുക സംഘ്ലർഷ മേഖലകളിൽ നിന്നും സൈനികരെ പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രൂപരേഖയായേക്കും ഇന്ത്യ്ൻ ഭാഗത്ത് യഥാർത്ഥ നിയന്ത്രണരേഖയിലെ ചുസൂൾ സെക്ടറിലായിരിക്കും കൂടിക്കാഴ്ചയെന്നാണ് സ്ഥിരീകരണം

നേരത്തെ രണ്ടു കൂടിക്കാഴ്ചകളും നടന്നത് ചൈനീസ് ഭാഗത്ത് ഉൾപ്പെടുന്ന മോൾദോയിലാണ്

ഈ മാസം ആറിന് നടത്തിയ സംഭാഷണത്തിലെ സേനാവിന്യാസം പിൻവലിക്കാനുള്ള തീരുമാനം നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

കോവിഡ് മഹാമാരി ഊർജ്ജ വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കിയതായി മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു

എണ്ണവില പ്രവചിക്കാൻ കഴിയില്ലെന്നും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില സ്ഥിരത കൈവരിക്കുന്നതിന് അനുസരിച്ച് ഇന്ത്യയിലെ വിലയും സ്ഥിരത കൈവരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

എല്ലാ നദികളും അപകടനില കവിഞ്ഞ് ഒഴുകുകയാണ്

മുണ്ണിടിച്ചിലും തുടരുകയാണ്

പൊതു ഇടങ്ങളിൽ സഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഡൽഹിയും തമിഴ്നാടുമാണ് മഹാരാഷ്ട്രയ്ക്കു തൊട്ടുപിന്നിൽ

ഐ എസ്

ഏറ്റവും കൂടുത്ത്ൽപേർ രോഗമുക്തി നേടിയത് കൊല്ലത്താണ്

ആയിരത്തോളം പേരുടെ പരിശോധനയാണ് സംഘം ആദ്യം നടത്തുക

മരണം ആർഞ്ച് ലക്ഷം പിന്നിട്ടു

എസ് എൽ സി പരീക്ഷാഫലം ഇന്നറിയാം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിദ്യാഭ്യാസമന്ത്രി സി

ഗൂഗിൾ പ്പേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നിന്നും പി ആർ ഡി ലൈവ് ഡൌൺലോഡ് ചെയ്യാം